പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ദ്വിദിന ബംഗ്ലാദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം

അവസാനിച്ചു

രണ്ടാം മത്സരം ഇന്ന് പൂനെയിൽ വിജയിച്ചാൽ ഇന്തൃയ്ക്ക് പരമ്പര സ്വന്തം

ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ എത്തുന്നത് ബംഗ്ലാദേശ് വിമോചനത്തിന്റെ സുവർണജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും സാമ്പത്തിക വികസന മേഖലകളിൽ ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് യാത്രയ്ക്ക് മുമ്പ് നൽകിയ സന്ദേശത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കോവിഡ് മഹാമാരിയ്ക്കെതിരെയുള്ള ബംഗ്ലാദേശിന്റെ ചെറുത്തു നിൽപ്പിനോട് രാജ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കോവിഡ് മഹാമാരി വന്നതിനുശേഷമുള്ളൂപ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശയാത്രയാണിത് ഇന്ന് പ്ലാക്കിയിൽ നടക്കുന്ന ബംഗ്ലാദേശ് ദേശീയ ദിനാഘോഷ്ങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ബംഗ്ലാദേശ് പ്രധാന്മന്ത്രി ഷെയ്ഖ് ഹസീനയുമായും പ്രസിദ്ധ്ന്റ് അബ്ദുൽ ഹമീദുമായും അദ്ദേഹം കൂടിക്കാഴ്ച നീട്ടത്തും

ഡി എ യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അടുത്ത മാസം രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് എത്തും ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ മത്സരിക്കുന്ന കോന്നിയിൽ പ്രധാനമന്ത്രി പ്രചാരണത്തിനായി എത്തും ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ കൂടി സംസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തുന്നതോടെ എൻ

ഡി എഫിന്റെ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി രാഹുൽഗാന്ധി ഇന്ന് പാലക്കാടും മലപ്പുറത്തും എത്തും പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ എ

ഡി എഫിന്റെ പ്രചാരണത്തിന് ഊർജ്ജമേകി മുഖ്യമന്ത്രി ഇന്ന് തലസ്ഥാന ജില്ലയിലെ മൂന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും

പിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തുടങ്ങിയവരും ഇടതുമുന്നണിയുടെ പ്രചാരണത്തിനായി മുൻനിരയിലുണ്ട് അവസാന വട്ട പ്രചാരണം വിലയിരുത്തുന്നതിനായി സിപിഐ എം സംസ്ഥാന സെക്രട്ടറിയ്ക്ക് ഇന്ന് ചേരും

സുരക്ഷിതവും സുഗമവും സമാധാനപരവുമായി വോട്ടെടുപ്പ് നടത്താൻ സജ്ജമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

കേരളത്തിനൊപ്പം ഏപ്രിൽ ആറിനാണ് രണ്ടിടത്തും വോട്ടെടുപ്പ് തമിഴ്നാട്ടിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കു ന്നുണ്ട് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് വോട്ടർമാർക്ക് തെർമൽ സ്ക്രീനിംഗ് നിർബന്ധമാക്കി ഒരു ബൂത്തിൽ പരമാവധി ആയിരം പേർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം വോട്ടിങ് മെഷീനുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിനായി വോട്ടർമാർക്ക് കൈയ്യുറകൾ നൽകും

സുഗമമായ വോട്ടെടുപ്പ് നടത്താൻ സജ്ജമായതാ്യി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടെടുപ്പിനായി സമാധാനപരവും ഭയരഹിതവുമായ അന്തരീക്ഷമൊരുക്കാൻ അർദ്ധ സൈനിക വിഭാഗങ്ങളെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്

താൻ അധികാരമേറ്റ ശേഷം ചൈനീസ് പ്രസിഡന്റുമായി രണ്ട് മണിക്കൂർ സംഭാഷണം നടത്തി അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കണമെന്നും ന്യായമായ മത്സരത്തെ മാനിക്കണമെന്നും ബൈഡൻ പറഞ്ഞു ഷീ ജിങ് പിങ്ങിന് ജനാധിപത്യ കാഴ്ചപ്പാട് ഇല്ലെന്ന് തോന്നുന്നുവെന്നും തയ്വാൻ ദക്ഷിണ ചൈനാ കടൽ തുടങ്ങിയ പ്രശ്നങ്ങളിൽ ചൈനയുടെ ഉത്തരവാദിത്തം പുറത്തുകൊണ്ടുവരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചു

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും

കോവിഡ് നിര്യ്ത്രിനായി സ്വീകരിച്ച മുൻകരുതലുകൾ ഇല്ലാതാക്കാൻ ഈ ഘട്ടത്തിലെ ചെറിയ അശ്രദ്ധ കാരണമാകുമെന്നു ് ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു

കോവിഷീൽഡ് വാക്ക്സീന്റെ രണ്ടാം ഡോസ് ആറ് മുതൽ എട്ട് ആഴ്ചയ്ക്കിട്ട ്സ്വീകരിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരം

കോവാക്സിന്റെ രണ്ടാം ഡോസ് നാലാഴ്ചയ്ക്കും ആറാഴ്ചയ്ക്കുമിടയിൽ സ്വീകരിച്ചാൽ മതിയാവും രാജ്യത്ത് വാ്ക്സിന് ക്ഷാമമില്ലെന്നും ജനങ്ങൾ അനാവശ്യമായി ആശങ്കപ്പെടരുതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന മത്സരം ഞായറാഴ്ചയാണ്

തന്റെ പരാതികളുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി ശ്രീ സിങ്ങിനോട് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഇത്